ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാർ പ്രകാരം ഇന്ത്യൻ സൈന്യം സൈനികനെ കൈമാറിയതായി ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു

ന്യൂഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ അറിയിച്ചതാണ്ട് ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ അധ്യക്ഷതയിലാണ് മുന്തിസഭാ യോഗം നടന്നത് കൂടുതൽ വിവരങ്ങളുമായി ന്റ്റേന്ദ്രമോഹൻ

വിജയദശമിക്ക് മുൻപായി ബോണസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഈ നടപടിയിലൂടെ ജമ്മുകശ്മീരിൽ ജനാധിപത്യസംവിധാനം ശക്തി പ്രാപിക്കുമെന്ന് മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു സമാധാന സംരംഭങ്ങൾക്ക് ബഹിരാകാശ ദൌത്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നൈജീരിയയുമായി ഒപ്പുവച്ച ധാരണ പത്രത്തെക്കുറിച്ചും മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്ത് അംഗീകാരം നൽകി

ജമ്മു കാശ്മീരിലെ ആപ്പിൾ സംഭരണവുമായി ബന്ധപ്പെട്ട് വിപണി ഇടപെടൽ നടത്തുന്നതിന് മാർക്കറ്റ് ഇന്റർ വെൻഷൻ പദ്ധതി നടപ്പിലാക്കാനും മന്ത്രിസഭയോഗം തീരുമാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ അധ്യക്ഷതയിലാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം ചേർന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതുപോലെതന്നെ ഐ സി എ ഐയും മലേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൌണ്ടന്റുമാരും തമ്മിലുള്ള പരസ്പര അംഗീകാര കരാറിനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചു

വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടന്ന അർദ്ധവാർഷിക വിലയിരുത്തലിൽ എല്ലാ സംസ്ഥാനങ്ങളും പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് വിശദമാക്കി പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ പദ്ധതി രേഖകൾ യോഗത്തിൽ ചർച്ച ചെയ്തു

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനക്കൂട്ടം അനുവദിക്കുള്ളുണ്ട് കമ്മീഷൻ നേരത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശ് നിൽകിയിരുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിരുട്ടി പ്രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഭാഗത്ത്രുനിന്നുള്ള അലസത ഉണ്ടാകുന്നതായും കമ്മീഷൻ വിലയിരുത്തി പ്രക്പാ്രണ വേളയിൽ അതീവ ജാഗ്രതയും കരുതലും ഉണ്ടാകണ്മെന്ന് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു

ദിനാചരണത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ രാജ്യത്തെ പൊലീസ് സേനാംഗങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചു

കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിര് ഷാ ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് ആമ്മോറിയലിലെത്തി വീരമൃത്യു വരിച്ച പോലീസുദ്യോഗസ്ഥർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് മെമ്മോറിയലിൽ നടന്ന പോലീസ് അനുസ്മരണ ദിന പരേഡിനെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു

എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ആയിരത്തിലേറെപ്പേർക്കാണ് രോഗബാധ

ആകെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

പ്രശ്നത്തിന്റെ ഗൌരവം കണക്കില്ലെടുത്ത് ഈ വിഷയത്തിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് ്യകൂട്ടുതൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതായി ഡെപ്യൂട്ടി സെക്രട്ടറി സ്റ്റീഫൻ ബീഗൻ മാധ്യമങ്ങൾക്കോട് പറഞ്ഞു

അബുദാബി ഷെയ്ഖ് സയദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ബാറ്റിങ് തെരഞ്ഞെടുത്തു

കോൺഗ്രസ് ദേശവിരുദ്ധർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ബിജെപി വക്താവ് ഗൌരവ് ഭാട്ടിയ ആരോപിച്ചു

ജെ പി നേതാവ് ചന്ദ്രകാന്ത് പാട്ടീലിന് അയച്ച ഒറ്റവരി കത്തിൽ അദ്ദേഹം കുറിച്ചു